വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കേരളത്തിലെത്തും

രാജ്യത്തിന്റെ ഒരിഞ്ചു മണ്ണു പോലും നിഷ്ടമാകില്ലെന്ന് രാജ്യരക്ഷാ മന്ത്രി കിഴക്കൻ ലഡാക്കിലെ സ്ഥിതിഗ്തികളെ കുറിച്ച് നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ വൃക്ത്രമാക്കിയിരുന്നു ഇന്ത്യൻ സേന ഫിംഗർ മൂന്നിലും ച്ചൈനീസ് സേന ഫിംഗർ എട്ടിലും നിലയുറപ്പിക്കുമെന്നാണ് സ്റ്റൂപ്പിക് പട്രോളിങ്ങ് ഉൾപ്പെടെയുള്ള സൈനിക് പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തി വയ്ക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട് കിഴക്കൻ ലഡാക്കിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള സേനാ പിൻമാറ്റം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്

മുരളീധ്രൻ എം

മാരായ അബിർ രഞ്ജൻ ബിശ്വാസ് എം

യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകളാണ് റെയിൽവെ സ്വീകരിച്ചുവരുന്നതെന്ന് ചോദ്യത്തിന് മറ്റൂപ്പിട്ടിയ്ട്യി അദ്ദേഹം പറഞ്ഞു

മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സമിതി രൂപീകരിക്കണമെന്ന് കേന്ദ്രസഹമന്ത്രി വി

പുതിയ കാർഷിക നിയമങ്ങൾ ചെറുകിട നാമമാത്ര കർഷകരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ്കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ പുതിയ ശക്തമായ ഇന്ത്യയ്ക്ക് ബജറ്റ് വഴിവെക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി അനുരാഗ് അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ നിർമ്മാണ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കാനും ബജറ്റിന് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കാർഷിക വിളകളുടെ താങ്ങുവില എടുത്തുകളയുമെന്ന വ്യാജ ആരോപണങ്ങൾ പരത്തി കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ശ്രീ അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു

അസമിലെ ബി ജെ

കൂച്ച് രാജ്ബൻഷി വിഭാഗത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു

മുഗൾ ബ്രിട്ടീഷ് സംയോജിത വാസ്തുശ്ശ്ലൈിയിലുള്ള വൈവിധ്യമാർന്ന അപൂർവ്വയിനം അലങ്കാര പ്യൂഷ്പ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രപതി ഭവനോട് ചേർന്ന് ഗ്ര്ഥിതി ചെയ്യുന്ന മുഗൾ ഉദ്യാനം

വിവിധനിറത്തിലും വലിപ്പത്തിലു മുള്ള റോസാ പുഷ്പങ്ങളാണ് ഇത്തവണത്തെ മുഖ്യ ആകർഷണം

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തുന്ന സംഘം നാളെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായും പൊലീസ് നോഡൽ ഓഫീസർമായും കൂടിക്കാഴ്ച നടത്തും

പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ ഇന്നലെ അഞ്ഞൂറിലധികം പേരിൽ കോവിഡ് ബാധ കണ്ടെത്തി

അമേരിക്ക ബ്രസീൽ ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ രോഗബാധിതർ

അതേസമയം ആസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് കാണികൾക്ക് പ്രവേശനം നൽകാതെ തുടരുമെന്നും ഗവൺമെന്റ് അറിയിച്ചു

തുരങ്കുത്തിലെ ചെളിയുടെയും വെള്ളത്തിന്റെയും ഒഴുക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസമാകുന്നുണ്ട്

മഹാരാഷ്ട്രയിലെ സൂക്ഷ്മ ചെറുകിട വൃവസായങ്ങൾ കരകൌശല തൊഴിലാളികൾ നെയ്ത്തുകാർ എന്നിവരുടെ ഉത്പന്നങ്ങൾ ഇന്തൃയിലെ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് ധാരണാപത്രം സഹായകമാവുമെന്ന് വൃവസായ സഹമന്ത്രി സുബാഷ് ദേശായി പറഞ്ഞു

സംസ്ഥാന നിയമസഭയിലേക്ക് നടത്തിയ പൊലീസ് മാർച്ചിനിടെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ചാണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും വ്യവസായങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് മാർച്ച് നടത്തിയത്

രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ഇന്ന് ആറ് ചിത്രങ്ങൾ

രാത്രി ഏഴിന് ഗ്ലോപ്പയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം